പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത് നാളെ

രാജ്യമെങ്ങും കാലവർഷം രണ്ടാഴ്ച മുമ്പെ എത്തി അതിശക്തമഴയ്ക്ക് സാധൃതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്

ഇരുരാജ്യങ്ങളിലേയും വിദേശകാര്യ സെക്രട്ടറിമാർ ത്രിമ്മിൽ വെർചൽ കൂടിക്കാഴ്ചയാണ് നടത്തിയത് ഉഭയകക്ഷി സ്ഹകരണവും ചർച്ച ചെയ്തതായി കേന്ദ്ര വിദേശകാര്യ മി്ത്രാല്യം അറിയിച്ചു

കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊണ്ട അതിശക്തമായ നടപടികളിലൂടെയാണ് ഇത് സാധിച്ചത്

ഗാന്ധിനഗറിൽ മുഖ്യമന്ത്രി വിജയ് രൂപാനിയുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്രസംഘം നിലവിലെ സ്ഥിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആരോഗൃമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാളാണ് കേന്ദ്ര സംഘത്തെ നയിക്കുന്നത്

ഇതിന്റെ ഭാഗമായി ഓരോ നിയമസഭാ മണ്ഡലത്തിലും സ്രവ പരിശോധന സൌകര്യത്തിന്റെ മേൽനോട്ടത്തിനായി നോഡൽ ഓഫീസറെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി ബി

ഇന്നലെ ബംഗളൂരുവിൽ നടന്ന എം എൽ എ മാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് ബംഗളൂരുവിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു

അബുദാബിയിൽ നിന്ന് ആദ്യമായി ഇത്തിഹാദ് വിമാനുവും കണ്ണൂരിലിറങ്ങി ദുബായ് ദോഹ റാസൽഖൈമ എന്നിവിടങ്ങളിൽ നിന്നുള്ളവയാണ് ഇന്നലെ എത്തിയ മറ്റ് വിമാന്ങ്ങൾ

ശക്തമായ മഴയിൽ ബ്രഹ്മപുത്ര ഉൾപ്പ്പെടെയ്ുള്ള പ്രധാന നദികൾ അപകടനിലയ്ക്ക് മുകളിലായ്ക്യാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായത്

ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം പടിഞാറ് തെക്ക് ട്ട് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങി കൊണ്ടിരിക്കുകയാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

കോഴിക്കോട്ടും വയനാട്ടിലുമാണ് ഓറഞ്ച് അലെർട്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർകോഡ് ജില്ലയിൽ യെല്ലോ അലെർട്ടാണ്